കോവിഡ് പ്രതിസന്ധി വിലയിരുത്താൻ പ്രധാനമന്ത്രി തിങ്കളാഴ്ച മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തുംട് പഞ്ചായത്തീരാജ് ദിനമായ നാളെ രാജ്യത്തെ ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും നരേന്ദ്ര മോദി അഭിസ്ംബോധന ചെയ്യും

അമേരിക്കയിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു കോവിഡ് സംസ്ഥാനത്തുണ്ടാക്കിയ സാമ്പത്തിക ആഘാതത്തെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ആരോഗ്യ പ്രവർത്തകർക്കു നേരെ നടക്കുന്ന അക്രമങ്ങൾ ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യമാക്കിയാണ് കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കിയത്

മോദി വീഡിയോ കോൺഫറൻസിംഗ് രാജ്യം രണ്ടാംഘട്ട ലോക്ക് ഡൌണിലൂടെ കടന്ന് പോകുന്നതിനിടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി വീണ്ടും വീഡിയോ കോൺഫറൻസ് നടത്തും തിങ്കളാഴ്ചയാണ് മോദി മുഖ്യമന്ത്രിമാരെ വീഡിയോ കോൺഫറൻസിലൂടെ കാണു്കുക രാജ്യത്ത് കൊവിഡ് പ്രതിരോധ പ്രവർത്തനം ആരംഭിച്ച ്ളേഷം മുഖ്യമന്ത്രിമാരുമായുള്ള മൂന്നാമത്തെ വീഡിയോ കോൺഫ്ടന്റെസാണ് ഇത്

ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ വീഡിയോ നാളെ കോൺഫറൻസിംഗിലൂടെയാണ് അഭിസംബോധന

മോദി നിർവ്വഹിക്കും

ചങ്ങനാശേരി സ്വദേശി ജോസഫ് മാത്യു ആണ് മരിച്ചത് അമേരിക്കയിൽ ഇതുവരെ പത്തിലേറെ മലയാളികളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്

ഒരു മെഡിക്കൽ വിദ്യാർഥിക്കും ആരോഗ്യ പ്രവർത്തകക്കുമാണ് ഇന്നലെ ശ്ലോഗം സ്ഥിരീകരിച്ചത്

വിശദാംശങ്ങളുമായി കോഴിക്കോട്ടു ് നിന്നും ആകാശവാണി പ്രതിനിധി നസീർ ബാബു

മഞ്ചേരി പയ്യനാട് സ്വദേശിയുടെ മകൾക്കാണ് രോഗബാധ കുട്ടി ഇപ്പോൾ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്

ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം സംസ്ഥാനത്തിന്റെ തന്ത് ് നികുതി വരുമാനം ഏതാണ്ട് നിലച്ചു

നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൂടെ ആളുകൾ കേരളത്തിലേക്കും തിരിച്ചും അനധികൃതമായി കടക്കുന്നത് തടയുമെന്നും മുഖൃമന്ത്രി പറഞ്ഞു കാർഷിക മേഖല കാർഷിക മേഖലയിൽ വലിയ പരിവർത്തനമുണ്ടാക്കി നമ്മുടെ ഭക്ഷ്യസൂരക്ഷ ഉറപ്പാക്കാനും കൃഷി ചെയ്യുന്നവർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കാനും സർക്കാർ വലിയൊരു കർമ പദ്ധതിക്ക് ഒരാഴ്ചയ്ക്കകം രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു